പരിഹരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് രാജൃരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്

ആക്കം കൂട്ടുമെന്ന് കേന്ദ്രം എ്യർക്രാഫ്റ്റ് ഭേദഗതി നിയമം രാജ്യസഭ പാസാക്കി

കോവിഡിനെതിരെ പോരാടുന്ന ആരോഗ്യ ന് പ്രവർത്തകർക്കായുള്ള പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ ഇൻഷുറൻസ് ആറ് മാസത്തേക്ക് കൂടി നീട്ടി

ഉയർന്നു കേരളത്തിൽ സമ്പർക്ക രോഗബാധിതർ വർദ്ധിക്കുന്നു

യഥാർഥ നിയന്ത്രണ രേഖയിലെ സാഹചര്യം സംബന്ധിച്ച് ലോക്സഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയുമാണ് അയൽക്കാരുമായുള്ള സമാധാനപരമായ ബന്ധത്തിന് അടിസ്ഥാനമെന്ന് ഇന്തൃ വിശ്വസിക്കുന്നത്

ചൈനയുമായുള്ള നയതന്ത്ര സൈനിക ഇടപെടൽ തുടരുകയാണെന്നും രാജ്യരക്ഷാ മന്ത്രി വ്യൂക്തമാക്കി

ഇത് സംബന്ധിച്ച ബിൽ ലോക്ട്സ്ഭ നേരത്തെ പാസാക്കിയിരുന്നു

വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നിവയെ നിയമാനുസൃതമുള്ള പ്രത്യേക സ്ഥാപനങ്ങളാക്കി മാറ്റാൻ നിയമത്തിൽ വൃവസ്ഥയുണ്ട് മൂന്നിനും പ്രത്യേകമായി ഡയറക്ടർ ജനറൽമാരെയും കേന്ദ്ര സർക്കാർ നിയമിക്കും

വരുന്ന ഒരു വർഷത്തേക്കാണ് ഈ മാറ്റങ്ങൾ വരുത്തിയത്

കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അപ്രതീക്ഷിതമായി കോവിഡിന് ഇരയായാൽ ഇൻഷുറൻസ് തുക ലഭൃമാകും സ്വകാരൃ ആശുപത്രികളും വിരമിച്ച ശേഷം താൽക്കാലിക വൃവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരും ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടും

പുതിയ എയിംസിനായി ഒരു ഡയറക്ടർ തസ്തിക സൃഷ്ടിക്കുന്നതിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി

ടി

കഴിഞ്ഞ ജനുവരി മുതൽ രാത്രി കാലത്തേക്ക് മാത്രമായി ഈ സൌകര്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരുന്നു സുരക്ഷിതവും ആശങ്കയില്ലാത്തതുമായ സേവനം ഉറപ്പാക്കുന്നതിനാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നതെന്ന് എസ്

ഐ എം ഡി സി

ഇടപാടുകാരുടെ മൊബൈൽ നമ്പർ ബാങ്കുകളിൽ നൽകണം

ബി

ടി എമ്മുകളിൽ മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ

പരിശോധനകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്

നാല് സംസ്ഥാനങ്ങളിലാണ് അൻപതിനായിരത്തിനു മുകളിൽ രോഗികൾ ഉള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രക്ഷിതാക്കളെയോ വീട്ടിലെ മുതിർന്ന പൌരന്മാരെയോ അവഗണിക്കുന്ന പിൻമുറക്കാരായ അവകാശികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് കോടതി ഒരു കേസിന്റെ വിധി പ്രസ്താവത്തിനിടെ വ്യക്തമാക്കി

കോടതികളിൽ ഹാജരാകുന്ന അഭിഭാഷകർ രജിസ്ട്രാറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം ആ ദിവസത്തേക്ക് മാത്രമായി റെയിൽവേ ടിക്കറ്റ് അനുവദിക്കും ടിക്കറ്റ് ദുരുപയോഗപ്പെടുത്തിയാൽ കർശന നടപടി ഉണ്ടാകും

വാക്സിൻ ഗവേഷണത്തിൽ മുൻനിരയിലുള്ള ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുന്നതായും ബിൽ ഗേറ്റ്സ് പറഞ്ഞു